സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംഘടിപ്പിക്കുന്ന ദിദിന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി നാളെ അഭിസംബോധന ചെയ്യും

ആർ പരീശോധന നിർബന്ധമാക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം

എസ് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ് വനിതാ വിഭാഗം സെമി ഫൈനൽ നാളെ പോരാട്ടം അമേരിക്കയുടെ സെറീന വില്യംസും ബലാറസിന്റെ വിക്ടോറിയ അസരങ്കയും തമ്മിൽ

കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ് രണ്ട് ദിവസത്തെ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്

നയം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുക പുതിയ കോഴ്സുകൾക്കും അധ്യയന സമ്പ്രദായങ്ങൾക്കും രൂപം നൽകുക സർവ്വകലാശാലകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പി ക്കുക സാങ്കേതിക സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ചുമതലകളാണ് ഉപസമിതികൾ നിർവ്വഹിക്കുക

മത്സ്യബന്ധന മേഖലയിൽ സുസ്ഥിര വികസനം ലക്ഷ്യമിടുന്ന പ്രധാനമന്ത്രി മത്സ്യ സമ്പാദ യോജന രാജ്യത്തിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം

മികച്ച കാലികളെ തിരഞ്ഞെടുക്കാനും അവയുടെ പ്രത്യുല്പാദനം ആരോഗ്യം ഭക്ഷണക്രമം എന്നിവ സംബന്ധ്രിച്ചു ക്റ്റവും പുതിയ വിവരങ്ങൾ കണ്ടെത്താനും ഈ ആപ്സിക്കേഷ്ടൻ കർഷകരെ സഹായിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷ പ്രകടിഷ്ടിച്ചു കൊറോണ പ്രതിരോധ മരുന്നിന് ഇനിയും കാത്തിരിക്കേണ്ടതുട്ടെന്ന് ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രി സാമൂഹിക അകലം മൂഖ്ാവരണങ്ങളുടെ ഉപയോഗം തുടങ്ങിയ മികച്ച പ്രതിരോധ മാർഗ്ഗങ്ങളിലൂടെ രോഗത്തിൽ നിന്ന് രക്ഷ നേടാൻ ആകുമെന്ന് ഓർമ്മിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

അംബാല വ്യോമസേന താവളത്തിൽ നടന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിങ് ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി ഫ്ളോറൻസ് പാർലെ എന്നിവർ മുഖ്യാതിഥികളായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് വ്യോമസേനാ മേധാവി എയർചീഫ് മാർഷൽ ആർ

ബദൌരിയ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു

ഇന്ത്യയുടെ പ്രതിരോധ ഇടനാഴികളിൽ നീക്ഷേ്പം നടത്താൻ അദ്ദേഹം ഫ്രഞ്ച് ഉത്പാദകരെ ക്ഷണിച്ചു

വാതക അധിഷ്ഠിത സമ്പദ്വൃവസ്ഥയിലേക്ക് ഇന്ത്യ നീങ്ങുകയാ ണെന്ന് ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു

പ്രതിരോധ സെക്രട്ടറിഡോ അജയകുമാർ ജാപ്പനീസ് നയതന്ത്ര പ്രതിനിധി സുസുക്കി സതോഷി എന്നിവരാ ണ് കരാറിൽ ഒപ്പുവച്ചത് ഇരുസേനകൾക്കും ഇടയിലെ പരസ്പര സഹകരണവും ഉഭയകക്ഷി പ്രതിരോധ പരിപാടികളും വർദ്ധിപ്പി ക്കാൻ കരാർ ലക്ഷ്യമിടുന്നു

ചില സംസ്ഥാനങ്ങളിൽ ആന്റിജൻ പരിശോധനയിൽ നെഗറ്റീവായ എന്നാൽ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന വൃക്തികൾക്ക് ആർ ടി

സി

രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന എന്നാൽ പരിശോധനയിൽ നെഗറ്റീവ് ആയ വൃക്തികൾ മറ്റുള്ളവർക്ക് രോഗം പകരുന്നില്ല എന്ന് ഉറപ്പാക്കണമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി

പ്രാരംഭദശയിൽ തന്നെ രോഗനിർണയം നടത്തി ചിക്ടിർസ് നൽകാൻ കഴിഞ്ഞതിലൂടെ മരണ നിരക്കും കുറയ്ക്കാനാ് യതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു

ശൈലജ അറിയിച്ചു

ഇത് സംബന്ധിച്ച് വിവിധ അഭിപ്രായങ്ങൾ ഉയർന്നു സ്കാർഹ്ചര്യത്തിലാണ് സർക്കാർ യോഗം വിളിച്ചത്

അതിശക്തമായ മഴയ്ക്ക് സാധൃതയുള്ളതിനാൽ നാലു വടക്കൻ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യാഴാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രത

മൂന്നു ദിവസം കേന്ദ്ര സംഘം സംസ്ഥാനത്തെ വിവിധ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ നേരിട്ടെത്തി സ്ഥിതിഗതി വിലയിരുത്തും

സംസ്ഥാന സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രി പ്രമീള് ്റാണി ബ്രഹ്മ ഗോഹട്ടിയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു

പഞ്ചാബിലെ സുവിർണ്ണ് ക്ഷേത്രത്തിന് വിദേശ ഫണ്ട് സ്വീകരിക്കാൻ അനുമതി നൽകിയ സർക്കാർ തീരുമാനത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ പ്രകീർത്തിച്ചു തികച്ചും വിപ്തവകരമായ ഒരു തീരുമാനമാണ് ഇതെന്നും സിഖ് സമുദായ ത്തോടുള്ള സർക്കാരിന്റെ സേവന മനോഭാവമാണ് ഇതോടെ ഒരിക്കൽ കൂടി വെളിവാകുന്നതെന്നും അദ്ദേഹം ടവിറ്ററിൽ കുറിച്ചു

രാഷ്ട്രപതി റാം നാഥ് കോവിന്ദ് ആണ് അദേഹത്തെ തൽസ്ഥാനത്തേക്കു നിയമിച്ചത്

എസ് ഓപ്പൺ ടെന്നീസ് ടൂർണ്ണമെന്റിൽ നാളെ നടക്കുന്ന വനിതാ വിഭാഗം സെമി ഫൈനലിൽ അമേരിക്കയുടെ സെറീന വില്യംസും ബലാറസിന്റെ വിക്ടോറിയ അസരങ്കയും ഏറ്റുമുട്ടും

എന്നാൽ പതിനാറാം സീഡ് എലീസ് മെർത്തേൻസിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് അസരങ്ക അവസാന നാലിൽ ഇടംപിടിച്ചത്